വോട്ടെടുപ്പിന്റെ പ്രചാരണത്തിന് ചൂടേറി

ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീപോളിംഗ് പ്രഖ്യാപിച്ചു ലോകവ്യാപാര സ്ഠഘട്നയുടെ പ്രവർത്തനങ്ങൾ ന് ശക്തിപ്പെടുത്താൻ ധാരണ

സെറീന വില്യംസ് പരിക്ക് മൂലം പിൻമാറി

കൂടുതൽ വിവരങ്ങളുമായി കരോൾ

ജെ

അധ്യക്ഷൻ അമിര് ഷാ മധ്യപ്രദേശിലെ ധർ അലിരാജ്പൂർ എന്നിവിടങ്ങളിൽ പ്രചാർണം നടത്തും ഉത്തർപ്രദേശിൽ നിരവധി നേതാക്കൾ ഇന്ന് പ്രചാരങ്ണങ്ങളിൽ പങ്കെടുക്കുമെന്ന് ആകാശവാണി ലക്നൌ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു

മധ്യപ്രദേശിലെ ഹർദാർ ജില്ലയിലെ വോട്ടെണ്ണൽ ഇക്കുറി വനിതകളുടെ നേതൃത്വത്തിലായിരിക്കും നടത്തുക ന്യൂസ്ഡെസ്ക് ആകാശവാണി

വോട്ടെടുപ്പിൽ തടസം നേരിട്ടിരുന്നു പുരി കട്ടക് ബാലാസോർ തുടങ്ങിയ ദുരന്തബാധിത ജില്ലകളിലാണ് റീപോളിംഗ് നടത്തുക

ദുരന്തബാധിത സ്ഥലങ്ങളിൽ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം ഇന്ന് പൂർത്തിയാവും കേന്ദ്രത്തിൽ നിന്നുള്ള രണ്ട് സംഘങ്ങളാണ് ഒഡീഷയിൽ പര്യടനം നടത്തുന്നത്

കേന്ദ്രമന്ത്രിമാരായ നിർമ്മ്ല് സീതാരാമൻ മുഖ്താർ അബ്ബാസ് നഖ്പി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ന്യൂഡൽഹിയിൽ കമ്മിഷനെ സന്ദർശിച്ചത് തൃണമൂൽ കോൺഗ്രസ് പിന്തുണയോടെയാണ് അക്രമങ്ങൾ നടത്തുന്നതെന്ന് ബി

എന്നാൽ ബിജെപി പുറത്തുനിന്നും എത്തിച്ചവരാണ് റോഡ് ഷോയിൽ അക്രമമുണ്ടാക്കിയതെന്ന് തൃണമൂൽ കോൺഗ്രസ്സ് പാർട്ടി വക്താവ് ഡെറിക് ഒ ബ്രെയ്ൻ ട്ടിറ്ററിൽ കുറിച്ചു സംഭവത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്

വികസ്വര രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ എല്ലാ അംഗങ്ങൾക്കും പ്രയോജനം ലഭിക്കുന്ന വിധത്തിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും സമ്മേളനത്തിൽ ഒപ്പുവച്ച ധാരണാ പത്രത്തിൽ പറയുന്നു

എന്നാൽ ധാരണാ പത്രത്തിൽ ഒപ്പുവയ്ക്കുന്നതിൽ നിന്ന് സ്മ്മേളനത്തിൽ പങ്കെടുത്ത അഞ്ച് രാഷ്ട്രങ്ങൾ വിട്ടു നിന്നു

ആർ ന്റെ സംയുക്ത അദ്ധ്യക്ഷ സ്ഥാനത്തേക്ക് ഇന്ത്യയെയും തെരഞ്ഞെടുത്തു ജനീവയിൽ നടക്കുന്ന യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി കരോൾ പ്രകൃതി ദുരന്തങ്ങൾക്കും കാലാവസ്ഥാ വൃതിയാനത്തിനുമെതിരെ പൊരുതാൻ വികസ്വര രാഷ്ട്രങ്ങളെ സജ്ജരാക്കുന്ന ആഗോള സംഘടനയാണ് ലോകബാങ്കിന്റെ സഹായത്തോടെയാണ് ജി

ഇന്നലെ സ്വിറ്റ്സർലന്റിലെ ജനീവയിൽ നടന്ന സംഘടനയുടെ ആറാമത് യോഗത്തിലാണ് അടുത്ത സമ്മേളനത്തിൽ ഇന്ത്യയെയും സംയുക്ത അദ്ധ്യക്ഷസ്ഥാനത്തേക്ക് തീരുമാനിച്ചത്

ദുരന്തനിവാരണ പ്രവർത്തനങ്ങളിൽ രാജ്യം നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ലഭിച്ചതെന്ന് ഇന്ത്യ പ്രതികരിച്ചു മറ്റ് അംഗരാജ്യങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച് ദുരന്ത നിവാരണ രംഗത്ത് കൃത്യവും വൃക്തവുമായ സംഭാവനകൾ നൽകുന്നതിന് ഇത് അവസരം നൽകും

സ്ഥിതിഗതികൾ സാധാരണ നിലയിലായതിനെ തുടർന്നാണ് നടപടി

സമൂഹമാധ്യമങ്ങളിലൂടെ ദേശീയ ഐക്യം തകർക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്ത് വരികയാണെന്നും സാമുദായിക ഐക്യം തകർക്കുന്ന തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളെയും കർശനമായി തടയുമെന്നും പോലീസ് അറിയിച്ചു

ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ പ്രതിപക്ഷ നേതാവ് ജെറമി കോർബിൻ എന്നിവർ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തുവിട്ടത് ബ്രെക്സിറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ തുടരുന്ന അനിശ്ചിതാവസ്ഥ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഇരുവരും ചർച്ച നടത്തിയത് യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചകൾക്കു ശേഷം രൂപപ്പെടുത്തിയ പുതിയ വിടുതൽ കരാർ ജൂൺ ആദ്യവാരം അവതരിപ്പിക്കുമെന്ന് ഔദ്യോഗിക വക്താവ് അറിയിച്ചു തെരേസാ മേയുടെ ബ്രെക്സിറ്റ് ശുപാർശകളെ നേരത്തെ മൂന്ന് തവണ ബ്രിട്ടീഷ് എം പിമാർ തള്ളിയിരുന്നു

ഭ്രൂണഹത്യ ചെയ്യുന്ന ഡോക്ടർമാർക്ക് ജീവപര്യന്തം തടവ് ഉറപ്പാക്കുന്ന നിയമം സെനറ്റ് പാസ്സാക്കി

എന്നാൽ ബലാൽസംഗം മൂലം ഗർഭിണിയായാൽ പോലും ഇളവ് അനുവദിക്കാത്തത് വിവാദമായിരിക്കുകയാണ് ഇത്തരത്തിൽ നിയമം നടപ്പാക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നിയമനടപടികൾ സ്വീകരിക്കുമെന്ന് മനുഷ്യാവകാശ സംഘടനയായ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ വ്യക്തമാക്കി

ഇതാവശ്യപ്പെട്ടുള്ള ബിൽ അമേരിക്കൻ പ്രതിനിധി സഭയിലും സെനറ്റിലും അവതരിപ്പിക്കപ്പെട്ടു പൊതുജനങ്ങൾക്കെന്ന പേരിൽ സൈനിക ആവശ്യങ്ങൾക്കായി അമേരിക്ക അടക്കമുള്ള പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളിൽ ചൈനീസ് സേനാ ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തുന്നത് ഇപ്പോഴും തുടരുകയാണെന്നും ബില്ലിൽ ആരോപിക്കുന്നു ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമിയുമായി ബന്ധമുള്ള ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ പട്ടിക തയാറാക്കാനും ബിൽ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നു

ജെ

നേതാവ് പ്രിയങ്ക ശർമ്മയെ അറസ്റ്റ് ചെയ്തത് നിയമവിധേയമല്ലെന്ന് സുപ്രീംകോടതി

ഈ വിഷയത്തിൽ പ്രിയങ്ക ശർമ്മയെ ജയിൽ മോചിതയാക്കണമെന്ന് കോടതി വിധിയുണ്ടായിട്ടും അത് പാലിക്കപ്പെട്ടില്ലെന്ന് പ്രിയങ്ക ശർമ്മയുടെ സഹോദരനാണ് പരമോന്നത കോടതിയെ സമീപിച്ചത് പ്രിയങ്ക ശർമ്മയെ ഉടൻ വിട്ടയച്ചില്പെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയലക്ഷ്യത്തിന് നടപടികൾ സ്വീകരിക്കുമെന് ബെഞ്ച് വിലയിരുത്തി എന്നാൽ ഇന്ന് രാവിലെ തന്നെ പ്രിയങ്ക ശർമ്മയെ വിട്ടയച്ചതായി ബംഗാൾ ഗവൺമെന്റ് കോടതിയിൽ വ്യക്തമാക്കി